എല്ലാ വോട്ടർമാരും സ്മ്മതിദാനാവകാശം വിനിയോഗിക്കണ്ണ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ

ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും

എന്നാൽ നക്സൽബാധിത മേഖലകളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില മേഖലകളിലും പോളിംഗ് സമയത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

എല്ലാ വോട്ടർമാരും പ്രത്യേകിച്ച് കന്നിവോട്ടർമാർ വോട്ടെടുപ്പിൽ പങ്കാളികളാകുന്നത് ജനാധിപത്യ സംവിധാനത്തിലെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാഴ്ചപ്പാട് പ്രായോഗികമാകുന്നതിനും ഇടയാക്കുമെന്നും സുനിൽ അറോറ പറഞ്ഞു

എല്ലാ പുതിയ വോട്ടർമാരും സമ്മതിദാനാവകാശം കൃതൃമായി വിനിയോഗിക്കണമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ അഭ്യർത്ഥിച്ചു

വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ ദിനംപ്രതി ഒന്നും രണ്ടും തെരഞ്ഞെടുപ്പ് റാലികളിലാണ് പങ്കെടുക്കുന്നത് പ്രധാന്മുന്തി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ഭഗൽപൂരിലും അസമിലെ ് മംഗൽദോ സിൽചാർ എന്നിവടങ്ങളിലും പൊതുയോഗൃങ്ങളെ അഭിസംബോധന ചെയ്യും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പശ്ചിമബംഗാളിലെ ദാർജീലിംഗ് ഉത്തർദൂനാർജ്പൂർ എന്നിവിടങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണയോഗങ്ങളിൽ പങ്കെടുക്കും

ഇതിനിടെ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി ഇന്ന് റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അവിടെ സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യും ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി അമേഠി മണ്ഡലത്തിൽ കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയ്ക്കെതിരെ മത്സരിക്കാൻ ഇന്ന് നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും

നക്സൽ ഭീഷണി നിലനിൽക്കുന്ന ദന്തേവാഡയിലും സുഖ്മയിലും കനത്ത തോതിൽ വോട്ടെടുപ്പ് നടക്കുകയാണ് രണ്ടിടത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

മുൻ മുഖ്യമന്ത്രി ത്രുൺ ഗൊഗോയ് സിറ്റിംഗ് എം പി ഗൌരവ് ഗൊഗോയ് ട്രപ്പ്രധാൻ ബറുവ എന്നിവർ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയവരിൽ ്ഉൾപ്പെടുന്നു

മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ കുടുംബസമേതം എത്തി വോട്ട് ചെയ്തു

അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ്ബസു അറിയിച്ചു

മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമുള്ള കണക്കാണിത് ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പണവും അനധികൃത സാധനങ്ങളും പിടിച്ചെടുത്തത്

നിയമ വ്യവസ്ഥയുടെ പേരിൽ ബാലിശവും കഴമ്പില്ലാത്തതുമായ നടപടികൾ കൈക്കൊള്ളരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു

മൃതദേഹം പ പു്ർണ ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് ് മൂന്നിന് പാലാ സെന്റ്തോമസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും

അവസാന പന്തുവരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെ മൂന്ന് വിക്കറ്റുകൾക്കാണ് മുംബൈ പരാജയപ്പെടുത്തിയത്

ബ്രസ്സൽസിൽ അടിയന്തരമായി ചേർന്ന യൂറോപ്യൻ യുണിയൻ കൌൺസിലിന്റെ മാരത്തൺ ചർച്ചുകളിലാണ് തീരുമാനം കൈക്കൊണ്ടത് ചർച്ച അർദ്ധരാത്രിവരെ നീണ്ടു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ മുന്നോട്ടുവച്ചു ബദൽ നിർദ്ദേശങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി ചർച്ച ചെയ്ത് അംഗീകരിച്ചു

കരാറില്ലാതെ ബ്രക്സിറ്റ് നടപ്പാക്കുന്നതിനെ ബ്രിട്ടീഷ് പാർലമെന്റ് കക്ഷിഭേദമില്ലാതെ നീരാക്രിച്ചിരുന്നു ബ്രക്സിറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ജർമ്മൻ ചാൻസലർ ആംഗലാ മെർക്കൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പ്രധാനമന്തി തെരേസാ മേ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

തെരഞ്ഞെടുപ്പ് ജൂലായ് നാലിന് നടത്തുമെന്ന് ഇടക്കാല പ്രസിഡന്റ് അബ്ദുൾഖാദർ ബൻസാല അറിയിച്ചു

സ്വതന്ത്രവും നീതിയുക്തവുമായിരിക്കുമെന്ന് സൈനിക മേധാവി ജനറൽ അഹമ്മദ് ഗയിദ് സല പറഞ്ഞു